പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് രാത്രി എട്ട് മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും

പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര ്യൂന്ന് മന്ത്രി നിർമ്മലാ സീതാരാമൻ

നിരോധനാഞ്ജ ഉൾപ്പെടെ കർശന നീക്കങ്ങള്ളുമായി സംസ്ഥാന സർക്കാർ

കോവിഡ് പ്രതിരോധത്തിനായി സ്വീകരിക്കേണ്ട നിർണായക നടപടികളെക്കുറിച്ച് ജനങ്ങളുമായി പ്രധാനമന്ത്രി ആശയങ്ങൾ പങ്കു വയ്ക്കും ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്

മീഡിയ നൊവൽ കൊറോണ വൈറസിന്റെ വ്യാപനം മൂലമുള്ള പ്രതിസന്ധികൾ ജനങ്ങളിലെത്തിക്കാൻ രാജൃത്തെ മാധൃമങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര തലത്തിലുള്ള വിവരങ്ങളും മറ്റ് രാജ്യങ്ങളിൽ നടന്ന വാർത്തകളും പഠനങ്ങളെപ്പറ്റിയുള്ള ഇതിനായി ഉപയോഗപ്പെടുത്താവുന്നതാണ്

സാമൂഹിക അകലം പാലിക്കേണ്ട്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളെ ബോധവത്കരിക്ക്ാൻ മാധ്യമങ്ങൾ ശ്രമിക്കണം ജനങ്ങളെയും ഭരണ കൂട്ടത്ത്യേയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി മാധ്യമങ്ങൾ പ്രവർത്തിക്കങ്ങ്മെന്നും ശ്രീ

രാജ്യത്തെ ടെസ്റ്റിംഗ് സെന്ററുകളെപ്പറ്റിയും ഹോം ഐസലോഷൻ സംബന്ധിച്ച നിർദ്ദേശങ്ങളെപ്പറ്റിയും അവശ്യ സാധനങ്ങളുടെ ലഭ്യതയെക്കുറിച്ചും ഈ പേജുകളിൽ പരാമർശിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു നിർമല സീതാരാമൻ കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പാക്കേജ് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ധനമന്ത്രി നിർമല സീതാരാമൻ

ടി എം കളുടെ സർവ്വീസ് ചാർജ് ഒഴിവാക്കി

ഡെബിറ്റ് കാർഡ് ഉടമകൾക്ക് ഏത് ബാങ്കുകളുടെ എടിഎം ൽ നിന്ന് സൌജന്യമായി പണം പിൻവലിക്കാം

ലോക്ക് ഡൌൺ കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നലെ അർദ്ധരാത്രി മുതൽ ലോക്ക് ഡൌൺ നിലവിൽ വന്നു ഇതേ തുടർന്ന് കെ എസ് ആർ ടി സി സർവ്വീസുകളും സ്വകാര്യ ബസ് സർവ്വീസുകളും റദ്ദാക്കിയിട്ടുണ്ട്

സംസ്ഥാനത്തിന്റെ അതിർത്തികൾ അടയ്ക്കുകയും പരിശോധന കർശനമാക്കുകയും ചെയ്തു

കൂടിവെള്ളം എൽപിജി വിതരണം തുടങ്ങിയ അവശ്യ സേവനങ്ങളെ ലോക്ക് ഡൌൺ ഒരു രീതിയിലും ബാധിക്കില്ല

കൊച്ചി കുമ്പളം പൊന്നാരിമംഗലം ഉൾപ്പെടെയുള്ള ടോൾ പ്ലാസകൾക്ക് ഇത് ബാധകമായിരിക്കും

ലോക്ക്ഡൌൺ വേളയിൽ വാഹനങ്ങളുമായി പുറത്തിറങ്ങുന്നവർക്ക് പാസ് ആവശ്യമെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ അവശ്യ സേവനങ്ങൾക്കുള്ള പാസ്സുകൾ ജില്ലാ പോലീസ് മേധാവികൾ നൽകും സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ സത്യവാങ്മൂലം നൽകണം

സർക്കാർ ഉദ്യോഗസ്ഥർക്കും മാധ്യമ പ്രവർത്തകർക്കും തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് മാത്രമേ യാത്ര ചെയ്യാനാകൂവെന്നും ഡിജിപി വൃക്തമാക്കി

ജനങ്ങൾ പോലീസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടേയും നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

മൂന്നാർ കുഞ്ചിത്തണ്ണി പള്ളിവാസൽ കെ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ

സ്വകാര്യ വാഹനങ്ങൾ നിരത്തുകളിൽ വർദ്ധിച്ചതോടെ പോലീസ് പരിശോധന ശക്തമാക്കുകയും അത്യാവശ്യങ്ങൾ ഇല്ലാത്തവരെ മടക്കി അയക്കുകയും ചെയ്തു

ചെറിയ പ്പ്പി പ്പോലുള്ളവയ്ക്ക് വീട്ടിൽ വച്ച് തന്നെ മരുന്ന് നൽകാവുന്നതാണ്ട് അതേ സമയം കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പ്രതിരോധ കുത്തീ വെയ്പ്പുകൾ ഈ സന്ദർഭത്തിലും യഥാസമയം നൽകാവൂന്നത്ത്ണെന്ന് എറണാകുളം ജനറൽ ആശുപത്രി പീഡിയ്യാട്ടിക്സ് വിഭാഗം കൺസൾട്ടന്റ് ഡോ സുനിൽ

ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകിയത്

ആസൂത്രിതമായ പൊതുജനാരോഗ്യ നടപടികളിലൂടെ ഇത് നേടിയെടുക്കാൻ ആകുമെന്നും അദ്ദേഹം പറഞ്ഞു ഷഹീൻ ബാഗ് കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിലെ ഷഹീൻബാഗിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്യുന്നവരെ നീക്കം ചെയ്തു കഴിഞ്ഞ മൂന്ന് മാസമായി ഇവിടെ സ്ത്രീകളൂൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ സമരം തുടർന്നു വരുന്ന സാഹചര്യത്തിലാണ് നടപടി

ഇവിടെ മരണസംഖ്യ ആറായിരം കടന്നിട്ടുണ്ട്

ജപ്പാനും അന്താരാഷ്ട്ര ഒളിമ്പിക് സമിതിയും ഇത് സംബന്ധിച്ച

കോവിഡ് വ്യാപിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഒളിമ്പിക്സ് അടുത്ത വർഷത്തേക്ക് മാറ്റി വയ്ക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ലെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു

സ്വർണ്ണ വിലയിൽ മാറ്റമില്ല